അക്രമരാഷ്ട്രീയം ഇല്ലാതാക്കാൻ എല്ലാരാഷ്ട്രീയപാർട്ടികളും തയ്യാറാകണമെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ

ബി ഐ അനേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തുന്നു കേരള സംരക്ഷണ യാത്ര വടക്കൻ മേഖലാജാഥയുടെ ജില്ലാ തല സമാപനം ഇന്ന് വൈകിട്ട് കോഴിക്കോട്ട് നടക്കും

ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ പത്തുലക്ഷംകോടി അമേരിക്കൻ ഡോളർ മൂല്യത്തിലേക്ക് കൊണ്ടുവരികയെന്നതാണ് തന്റെ കാഴ്ച പ്പാടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പറഞ്ഞു വൈദ്യുത വാഹനനിർമ്മാണത്തിൽ ആഗോളതലത്തിൽ ഒന്നാംനി രയിലേക്ക് കൊണ്ടുവരണമെന്നും എണ്ണമറ്റ പുതുവ്യവസായസംര ംഭങ്ങൾ ഇന്ത്യയിൽ ഉദിച്ചുയരണമെന്നും അദ്ദേഹം പറഞ്ഞു

എ ഗവൺമെന്റ് ഭരണത്തിലെത്തു മ്പോൾ വൻ ധനക്കമ്മിയും ഉയർന്ന പണപ്പെരുപ്പവും നയപരമായ മുരടിപ്പുംമൂലം താറുമാറായ സമ്പദ്വ്യവസ്ഥയായിരുന്നു ഇന്ത്യയു ടേത്

പണപ്പെരുപ്പം നാലര ശതമാനത്തിൽതാഴെയാക്കാനും ഗവൺമെന്റിന് കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ നടപടി സ്വീകരിച്ചുവരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും കേരള ക്ലെയ്സ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെയും നേതൃത്വത്തിൽ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ ആരംഭിച്ച മലബാർ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

സ്റ്റാർട്ടപ്പുകൾക്ക് അനുയോജ്യ അന്തരീക്ഷം ഒരുക്കുന്ന തിൽ കേരളം മുൻപന്തി യിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

തുടർച്ചയായി രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരള മെന്ന പ്രതീതിയുണ്ടാകരുത് ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ സി

എമ്മിന്റെ നയമല്ലെന്നും സി

എമ്മിന്റെ ഹൃദയ മെടുത്തുകളയാമെന്നാണ് ചിലർ കരുതന്നതെന്നും എന്നാൽ വിര ട്ടലുകളെ പാർട്ടി ഭയക്കുന്നില്ലെന്നും കോടിയേരി പറഞ്ഞു

ഉച്ചക്കു ശേഷം കൊടുമ്പ് ഗവർണമെന്റ് പോളി ടെക്നിക്കിലെ വിവിധ കെട്ടിടങ്ങൾ കഞ്ചിക്കോട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി നിർമിച്ച പാർപ്പിട സമുച്ചയം അപ്നാഘർ വൈകീട്ട് ഷൊർണ്ണൂരിലെ ജലശുദ്ധീകരണ ശാല എന്നിവ മുഖ്യമന്ത്രി ഉൽഘാടനം ചെയ്യും കാസർകോട് പെരിയ ഇരട്ടക്കൊലപാതകക്കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തുന്നു കൊച്ചി യിൽ എസ്

പ്രതിഷേധക്കാർക്കെ തിരെ പൊലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കാസർകോട് പെരിയയിൽ സി

എം നേതാക്കൾക്കെ തിരെ പ്രതിഷേധം ജില്ലാസെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പി കരുണാകരൻ എം പി എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘ ത്തെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് പ്രതിഷേധ ക്കാരെ പൊലീസ് മാറ്റി കാസർകോട് പെരിയയിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ പോകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിരുന്നുവെന്ന് എം

എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ സഹകരിച്ചില്ലെന്ന് അദ്ദേഹം ആരോപി ച്ചു ഇരട്ടക്കൊലപാതകത്തുടർന്ന് പെരിയയിലും പരിസരങ്ങ ളിലുമുണ്ടായ അക്രമങ്ങളിൽ അഞ്ചുകോടി രൂപയുടെ നഷ്ടമുണ്ടാ യതായും പി കരുണാകരൻ വ്യക്തമാക്കി

എസ് ആരുമായും ചർച്ചയ്ക്കില്ലെന്ന നിലപാട് ശരി യല്ലെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണൻ പറഞ്ഞു എല്ലാ രാഷ്ട്രീയപാർട്ടികളിലുംപെട്ടവർ എൻ

സംഘടനാ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാട് സവർണ മനോഭാവമാണെന്നും അണികൾ അത് സ്വീകരിക്കില്ലെന്നും കോടിയേരി ആലപ്പുഴയിൽ പറഞ്ഞു ഇത്ത ര ക്കാ രു ടെ പിന്നാ ലെ പോ കേണ്ട ഗതി കേട് സി

എമ്മിന് ഇല്ലെന്നും കോടിയേരി വൃക്തമാക്കി സെന്റർഫോർ മറൈൻ ലിവിങ് റിസോഴ്സസ് ആന്റ് ഇക്കോ ളജിയുടെ പുതിയ ക്യാംപസ് അടൽ ഭവൻ കേന്ദ്രമന്ത്രി ഡോ ഹർഷവർധൻ കൊച്ചി പുതുവൈപ്പിനിൽ ഉദ്ഘാടനം ചെയ്തു പുതുവൈപ്പ് എൽ

സ്ഥാപന ത്തിന്റെ പുതിയ വെബ്സൈറ്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വി വിപാറ്റ് എന്നിവയിൽ ഉപയോഗിച്ച സോഫ്റ്റ്വെയർ പുനപരിശോധിക്കണമെന്ന ഹർജി യിൽ അടുത്തമാസം ഒന്നിനകം വിശദ റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദേശിച്ചു

ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്നിവരെയും കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ജമ്മുകശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി മേധാവി അബ്ദുൾ ഹമീദ് ഫയാസ് അടക്കം നേതാക്കളെ പൊലീസ് കസ്റ്റഡിയിലെ ടുത്തു വിഘടനസംഘടനയായ തെഹ്രീക് ഈ ഹുറിയത്തിനെ തിരെ സ്വീകരിക്കുന്ന ആദ്യ കർശന നടപടിയാണിതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നേരത്തെ വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെയും പൊലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു

എഫ് നേതാവായ ഇയാളെ ഇന്നലെ രാത്രിയാണ് കസ്റ്റ ഡിയിലെടുത്തത് പ്രദേശത്ത് പൊലീസും അർദ്ധസൈനിക വിഭാ ഗവും അതീവജാഗ്രതാനിർദേശം നൽകിയിട്ടുണ്ട് പുൽവാമ ഭീക രാക്രമണത്തിന്റെ എട്ടാം ദിവസമാണ് പൊലീസിന്റെ നടപടി കേരള നിയമസഭാ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ വിദ്യാർഥി പാർലമെന്റിന് തിരുവനന്തപുരത്ത് തുടക്കമാ യി

രാവിലെ ഗവർണർ പി

പരിപാ ടിയുടെ ഭാഗമായി ആരംഭിച്ച സെഷനുകളിൽ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സിപിഐ നേതാവ് ഡി രാജ എന്നിവരടക്കം പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്

വാർപോറ മേഖലയിൽ ഭീകരർ ഒളിച്ചിരി പ്പുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് സൈന്യം തെരച്ചിൽ നടത്തി യത് സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തു കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് സൈനിക വൃത്തങ്ങൾ അറിയി ച്ചും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാജാഥ കോഴി ക്കോട് ജില്ലയിലെ സന്ദർശനം ഇന്ന് പൂർത്തിയാക്കും ചേളന്നൂ രിൽ നിന്ന് ആരംഭിച്ച ജാഥ വൈകീട്ട് കോഴിക്കോട് മുതലക്കു ളത്ത് സമാപിക്കും

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലജാഥ ആലപ്പുഴ ജില്ലയിലെ സ്വീകരണം പൂർത്തിയാക്കി കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും കണ്ണൂർ ആസ്ഥാനമായ ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടാ മത് ക്ഷേത്രകലാപുരസ്കാരം ഇന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനിക്കും ഉച്ചകഴിഞ്ഞ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ത്തിൽ ക്ഷേത്രകലാശ്രീ പുരസ്കാരം കലാമണ്ഡലം ഗോപി ആശാ നും ക്ഷേത്രകലാ ഫെലോഷിപ്പ് കാഞ്ഞങ്ങാട് രാമചന്ദ്രനുംസമ്മാ നിക്കും

സംസ്ഥാന ക്ഷീര വികസന വകുപ്പിന്റെ മാധ്യമ അവാർഡ് കോഴിക്കോട് ആകാശവാണി നിലയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ആലപ്പുഴയിലെ ക്ഷീരകർഷക പാർലമെന്റിൽ സമ്മാനിക്കും ലോക ക്ഷീര ദിനത്തിലെ വയലുംവീടും പരിപാടി യിൽ പ്രക്ഷേപണം ചെയ്ത ക്ഷീര സമൃദ്ധി ക്ഷേമരാഷ്ട്രത്തിന് എന്ന ചിത്രീകരണത്തിനാണ് ശ്രവ്യമാധ്യമ വിഭാഗത്തിൽ പുര സ്കാരം ലഭിച്ചത് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ലീന പി ബേബി സംവിധാനം ചെയ്ത ചിത്രീകരണം രചിച്ചത് അഷ്റഫ് കാവിലാണ്

എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി ജാംഷഡ്പൂർ എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ചെന്നൈയിലാണ് മത്സരം

വയനാട് സുൽത്താൻബത്തേരി നഗരസഭയിൽ യു

എഫ് കൊണ്ടുവന്ന അവിശ്വാസപ്രമേയം പരാജയപ്പെട്ടു

ജെ പിയും ഇടതുമുന്നണിയും വോട്ടെടുപ്പിൽ നിന്നുവിട്ടുനിന്നു കണ്ണൂർ അന്താരാഷ്ട്രവിമാനത്താവളത്തിലേക്ക് ഓട്ടോറിക്ഷകൾ ക്ക് പ്രവേശനം അനുവദിച്ചു കിയാൽ സി

ഒ ഉത്പൽ ബറുവ ഓട്ടോയൂണിയനുകളുമായി നടത്തിയ ചർച്ചയിലാണ് എയർപോർ ട്ടിന്റെ പാർക്കിംഗ് അറൈവൽ ഭാഗങ്ങളിലേക്ക് ഓട്ടോറിക്ഷകൾ കടത്തിവിടാൻ തീരുമാനിച്ചത് ബ്രഹ്മപുരം മാലിന്യപ്ലാന്റിലുണ്ടായ തീപിടിത്തത്തെക്കുറിച്ച് അന്വേഷണത്തിന് എറണാകുളം ജില്ലാകലക്ടർ ഉത്തരവിട്ടു

ഇതേതുടർന്ന് കൊച്ചി നഗ രത്തിലും സമീപപ്രദേശങ്ങളിലും രൂക്ഷമായ പുകശല്യമാണ് നില നിൽക്കുന്നത് പനമ്പിള്ളിനഗർ വൈറ്റില മരട് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് പുകശല്യമൂലം ശ്വാസതടസ്സമുണ്ടായതായി റിപ്പോർട്ടു ണ്ട് തീയണയ്ക്കാൻ ശ്രമം ഇപ്പോഴും തുടരുകയാണ് സംഭവ ത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണ മെന്നും കൊച്ചി മേയർ സൌമിനി ജെയിനും പി ടി തോമസ് എം

എ യും ആവശ്യപ്പെട്ടു കോട്ടക്കൽ ഇന്ത്യനൂരിൽ ഭൂമി സർവേക്കുശേഷം കൈക്കൂലി വാങ്ങുന്നതിനിടെ താലൂക്ക് സർവേയറെ വിജിലൻസ് പിടികൂടി

ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാ ക്കും പാലക്കാട് ഒലവക്കോട് റെയിൽവെസ്റ്റേഷനിൽ ഒന്നര ടൺതൂക്കം വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി

തമിഴ്നാട്ടിലെ മുധുക്കരയിൽ ചെന്നൈ മെയിലിൽ നിന്ന് വീണ് കോഴിക്കോട് സ്വദേശി അഭിജിത് മരിച്ചു

ശുചിമുറിയിൽ പോകുന്നതി നിടെ വാതിലിലൂടെ പുറത്തേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം ഇടുക്കി ഇടവെട്ടി പഞ്ചായത്ത് സി ഡി

പാലിൽ നിന്ന് മൂല്ല്യവർധിത ഉൽപ്പ ന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്